സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

മറാത്ത സമുദായ്ത്തിന് സംവരണം അനുവദിച്ചതിന്റെ ന് ഭരണ ഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജിയിൽ സുപ്രീംകോടതി അടിയന്തര വാദം കേൾക്കും

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ബി

കടുവകളെ സംരക്ഷിക്കുന്നതിന് സാധ്യമായ എല്ലാം ചെയ്യുമെന്ന് ശ്രീ

കടുവകളുടെ കണക്കെടുപ്പ് നൽകുന്ന വിവരങ്ങൾ രാജ്യത്തെ പ്രകൃതി സ്നേഹികളെ ആനന്ദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

് ഈ ലക്ഷ്യപ്രാപ്തിയ്ക്കായി പരിശ്രമിച്ച എല്ലാവരെയും പ്രധാനമൂന്തി അഭിനന്ദിച്ചു പരിസ്ഥിതി സന്തുലനം നിലനിർത്തിയുള്ള വികസനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് ശ്രീ

മനുഷ്യർക്ക് ഗുണമേന്മയുള്ള വീടുകൾ നിർമ്മിക്കുന്നതോടൊപ്പം മൃഗങ്ങൾക്കും സുരക്ഷിതമായ ആവാസ വ്യവസ്ഥ ഒരുക്കുമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു

കടുവ സംരക്ഷണത്തേയും കടുവകളുടെ ആവാസവ്യവസ്ഥയെയും കുറിച്ച് സാമൂഹിക അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ദിനാചരണം

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയി അധ്യക്ഷനായ ബഞ്ചാണ് വാദം കേൾക്കുന്നത്

കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ സ്റ്റേ ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം മല്യ സമർപ്പിച്ച ഹർജി ഡിവിഷണൽ ബഞ്ചും തള്ളിയിരുന്നു

ഇപ്പോൾ ബ്രിട്ടനിലുള്ള മല്യ ഇന്ത്യക്ക് കൈമാറാനുള്ള വിചാരണ നേരിടുകയാണ്

ഇന്നലെ വൈകീട്ടോടെയാണ് രാഷ്ട്രപതി കൊട്ടോണുവിൽ എത്തിചേർന്നത് കൂടിക്കാഴ്ചയെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ കരാറുകളിൽ ഒപ്പുവെയ്ക്കും പോർട്ടോ നോവോയിലെ ദേശീയ അസംബ്ലിയേയും ശ്രീ

കൊട്ടോണുവിൽ നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ ആഫ്രിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് രാഷ്ട്രപതിയുടെ ആഫ്രിക്കൻ സന്ദർശനം ബെനീൻ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ശ്രീ

ആഫ്രിക്കൻ രാജ്യവുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതാണ് സന്ദർശന ലക്ഷ്യം

ബസ്താർ ഡിവിഷനിൽ സുരക്ഷാ ഭടൻമാരുമായുള്ള ഏറ്റുമുട്ടലിൽ പുലർച്ചെയായിരുന്നു മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടത് ഒരു മണിക്കൂറോളം നീണ്ട വെടിവയ്പ്പിനൊടുവിലാണ് ഇവരെ കീഴ്പ്പെടുത്തിയത് കൊല്ലപ്പെട്ട ആയുധധാരികളുടെ ശരീരത്തിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു

കഴിഞ്ഞ രാത്രി ഹൈദ്രാബാദിലായിരുന്നു ജയ്പാൽ റെഡ്സിയുടെ അന്ത്യം ഉച്ചയ്ക്ക് ശേഷം ഹുസൈൻസാഗറിന്റെ തീരത്ത് പി

നരസിംഹറാവുഘട്ടിൽ ഹിന്ദുമതാചാര പ്രകാരം സംസ്കാരം നടത്തും

എസ് ഓഫീസറായ വി

ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന റിസർച്ച് ആന്റ് അനാലിസിസ് വിംഗിൽ സ്പെഷ്യൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ മാസം വിരമിക്കുന്ന ബി

എഫ് മേധാവി രജനി കാന്ത് മിശ്രയ്ക്ക് പകരമാണ് നിയമനം കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയത്തിൽ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയുടെ അധികചുമതല ശ്രീ ജൊഹ്റിക്കും ഉണ്ടാകുമെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു

കാബൂളിലെ സുരക്ഷാ സൈനൃം നിരവധി ഗൺമാൻമാരെ ആറ് മണിക്കൂറോളം കെട്ടിടത്തിൽ തടഞ്ഞുവച്ചിരായി അദ്ദേഹം പറഞ്ഞു

തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു മ്യാൻമറിലേയ്ക്കുള്ള തിരിച്ചുപോക്ക് ഉറപ്പാക്കുന്നതിന് റോഹിംഗൃ സമൂഹത്തിലെ വിവിധ മതവിഭാഗങ്ങളുമായി സംഘം കൂടിക്കാഴ്ച നടത്തി പ്രശ്നത്തിൽ ഉദ്യോഗസ്ഥരുമായി അവർ ചർച്ച നടത്തി മ്യാൻമാറിലെ റഖിനെ മേഖലയിലുള്ള തങ്ങളുടെ തിരിച്ചുവരവിന് പൌരത്വവും ഭദ്രതയും സുരക്ഷയും ഉറപ്പുവരുത്തണമെന്ന് ബംഗ്ലാദേശിലെ റോഹിഗ്യ പ്രതിനിധികൾ ആവശ്യപ്പെട്ടതായി ബംഗ്ലാദേശ് കമ്മീഷണർ മുഹമ്മദ് അബ്ദുൾ കലാം പറഞ്ഞു

തോക്ക്ധാരിയായ ഒരാളെ പോലീസ് വെടിവച്ചിട്ടു ഗിലോറി ഗാർലിക് ആഘോഷത്തിന്റെ അവസാന ഘട്ടമായ ഇന്നലെ വൈകുന്നേരമാണ് വെടിവയ്പ്പുണ്ടായത് സംഭവത്തെ അപലപിച്ച പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപ് ജനങ്ങളോട് ജാഗ്രതയിലായിരിക്കണമെന്ന് ട്വിറ്റർ സന്ദേശത്തിലൂടെ അഭ്യർത്ഥിച്ചു പരിക്കേറ്റവരിൽ ഗുരുതരാവസ്ഥയിലാണെന്ന് സാന്റാ ക്ലാര വാലി പൊതു ആരോഗ്യ സംവിധാനത്തിലെ വക്താവ് അറിയിച്ചു

മനുഷ്യകടത്തിൽ നിന്നും മോചനം പ്രാപിച്ചവരെ പുനരധിവസിപ്പിക്കുന്നതിനായ് നിർമ്മിച്ച അഭയകേന്ദ്രങ്ങൾ ഹൈദരാബാദിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മനുഷ്യകടത്ത് ചെറുക്കുകയും ഇതിന് ഇരയായവരെ കണ്ടെത്തി രക്ഷിക്കുകയും ചെയ്യാൻ ഏവരും തയ്യാറാവണമെന്നും ശ്രീ നായിഡു പറഞ്ഞു